സദാ ജാഗരൂകരാകാൻ സേനയോട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

പ്രസിഡന്റ്സ് കളർ പുരസ്ക്ക്ട്ാർം സമ്മാനിച്ചു

എ യെ പ്പോലീസ് മർദ്ദിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് സിഭയിൽ പ്രതിപക്ഷ ബഹളവും ഇറങ്ങിപ്പോക്കും

മലയാളത്തിലാക്കാൻ നടപടി ആരംഭിച്ചതായി മന്ത്രി എ കെ ബാലൻ

പുനർവിചാരണയും വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഇന്ന് അന്താരാഷ്ട്ര ബാലാവകാശ ദിനം

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പളളി നാവിക സേന മേധാവി അഡ്മിറൽ കരം വീർ സിംഗ്

മികച്ച സേവനം കാഴ്ചവെക്കുന്ന സൈനിക കേന്ദ്രങ്ങൾക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ് പട്ടിൽ തയ്യാറാക്കിയ പ്രത്യേക പതാകയാണ് പ്രസിഡന്റ്സ് കളർ

യു നിയമസഭാ മാർച്ചിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ ഷാഫി പറമ്പിൽ എം

വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് കടുത്ത പ്രതിപക്ഷ ബഹളത്തിന് ഇടയാക്കി ഇതേ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷ എം എൽ

പിന്നീട് തിരികെയെത്തിയ സ്പീക്കർ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ ശേഷം സഭ പിരിയുന്നതായി അറിയിക്കുകയായിരുന്നു സഭാ നടപടികൾ ദൌർഭാഗ്യകരമായ നിലയിലേക്ക് നീങ്ങിയതായി സ്പീക്കർ അറിയിച്ചു

എൽ എ അടക്കമുള്ള കെ

യു പ്രവർത്തകർക്കു നേരെ പോലീസ് നരനായാട്ടാണ് നടത്തിയതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ വി

ഷാഫി പറമ്പിലിന്റെ കൈ പോലീസുകാർ കടിച്ചുമുറിച്ചത് ഇത് പോലീസ് സേനയോ വാനര സേനയോ എന്ന സംശയം ഉണ്ടാക്കുന്നതായി ശ്രീ

അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ് ആക്രമണത്തിനു നേതൃത്വം നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു

എൽ എയ്ക്കു പരിക്കേറ്റ സംഭവം ദൌർഭാഗ്യകരം ആണെന്ന് മന്ത്രി ഇ

പരിക്കേറ്റ എം എൽ എ യെ ആശുപത്രിയിലേക്കു കൊണ്ടു പോകാൻ പോലീസ് നിർബന്ധിച്ചെങ്കിലും എം എൽ

ജനപ്രതിനിധികളെ അടിച്ചൊതുക്കുന്ന നയം ഗവൺമെന്റിനില്ല ജനപ്രതിനിധികൾക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തും സംഭവത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും ഇതിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കു നേരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു

എ യ്ക്കു പരിക്കേറ്റ സംഭവത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെന്റു ചെയ്താൽ മാത്രമേ അന്വേഷണത്തെ സ്വാഗതം ചെയ്യാനാകൂ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പോലീസ് രാഷ്ട്രീയമായി പക്ഷാപാതപരമായ നിലപാടു സ്വീകരിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ ചോദ്യോത്തരവേള നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു

പ്ല കാർഡുകളുമായി പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി

യു പ്രവർത്തകർക്കു നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ്

കേരള സർവകലാശാലയിലെ മോഡറേഷൻ മാർക്ക് തട്ടിപ്പ് വിവാദത്തിൽ പ്രതിഷേധിച്ച് കെ എസ്

ഡി എഫ് അംഗങ്ങളാണ് നോട്ടീസ്ക് ലോക്സഭയിൽ നൽകിയത്

എസ് സി യുടേത്ത് ഉൾപ്പെടെ എല്ലാ പരീക്ഷകളും മലയാളത്തിലാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചതായി സാംസ്കാരിക മന്ത്രി എ

മലയാളീകരിക്കാത്ത ഐ

ഗവൺമെന്റ് നൽകിയ അപ്പീലിലാണ് ഇക്കാര്യം കേസിൽ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് പറയുന്നത് പിഴവുണ്ടായെന്നും അപ്പീലിൽ പറയുന്നു

ചില സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് ആവശ്യമായ വൈദഗ്ദ്ധ്യം ർ ന്റെടിയവരെ ഇവിടെ കിട്ടാത്ത അവസ്ഥയുണ്ട് ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണമെന്ന് തിരുവനന്തപുരത്ത് സർവകലാശാല വൈസ്ക് പ്പാൻസലർമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു

പോത്തുണ്ടി ജലസേചന പദ്ധതിയിൽ നിന്നുള്ള ജലവിതരണം വെള്ളിയാഴ്ച ആരംഭിക്കും ജലവിതരണ കലണ്ടർ അനുസരിച്ച് കൃഷിരീതി അവലംബിക്കണമെന്നും കനാലിന് സമീപം താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും എക്സിക്യൂട്ടീവ് എൻജിനീയർ അറിയിച്ചു

രാവിലെ പത്ത് മണിക്ക് അട്ടയ്ക്കുന്ന റൺവെ വൈകീട്ട് ആറിനെ തുറക്കുകയുള്ളൂ

ടി മലപ്പുറത്ത് കോടിയുഖ് പൊന്നാനി സ്വദേശികളായ രണ്ടു പ്പേട്ട് പൊലീസ് കസ്റ്റഡിയിലെടുത്തു

പ്രതികളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നും നോട്ടെണ്ണുന്ന യന്ത്രവും വ്യാജ ചെക്കുകളും പൊലീസ് പിടിച്ചെടുത്തു

യു ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഫീസ് വർദ്ധനയിൽ ചർച്ചു തുടങ്ങി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നിയോഗിച്ച ഉന്നത തല സമിതിയുമായാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ ചർച്ച നടത്തുന്നത്

ഏലം ഏലത്തിന്റെ വില ഉയർന്നു

കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്

കളമശ്ശേരി സെന്റ് പോൾസ് സ്റ്റേഡിയത്തിൽ കേരളം നാർളിജാർഖണ്ഡിനെ നേരിടും

മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അദ്ധ്യക്ഷതയിൽ സന്നിധാനത്ത് ചേർന്ന അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം